അന്താരാഷ്ട്ര കൌൺസിലുമായി കൂടിക്കാഴ്ച നടത്തി

ബ്രക്സിറ്റ് ബിൽ ചർച്ചൂച്ചെയ്യുന്നതിനുള്ള സമയപരിധി നിർദ്ദേശം ന് ബ്രിട്ടീഷ് പാർലമെന്റ് പ്പോട്ടിനിട്ട് തള്ളി

സി സി ഐ അധ്യക്ഷനായി മുൻ ക്രിക്കറ്റ് ക്യാപ്ടൻ സൌരവ് ഗാംഗുലി ഇന്ന് ചുമതലയേൽക്കും

ന്യൂഡൽഹിയിൽ ജെപി മോർഗൻ അന്താരാഷ്ട്ര കൌൺസിലുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ശ്രീ നരേന്ദ്രമോദി ഇക്കാര്യം വ്യക്തമാക്കിയത്

ജനപങ്കാളിത്തത്തിനാണ് ഗവൺമെന്റ് ഉയർന്ന പരിഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആഗോള രാഷ്ട്രനേതാക്കളായ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ജോൺ ഹോവാർഡ് യു എസ് മുൻ സ്റ്റേറ്റ് സെക്രട്ടറിമാരായ ഹെൻറി കിസ്സിഞ്ചർ കോണ്ടലിസ്സ റൈസ് തുടങ്ങിയവർ ഉൾപ്പെട്ടതാണ് ജെ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചശ്രേഷ്ട് ന്യൂഡൽഹിയിൽ വാർത്താ ലേഖകരോട് സംസാരിക്കുകയായിരുന്നു ആദ്ദേഹം ഓരോ കുടുംബത്തിനും പദ്ധതി വളരെ പ്രയോജനം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു പശ്ചിമ ബംഗാളിൽ അഭിജിത് ബാനർജിക്ക് ഇന്നലെ പൌരസ്വീകരണം നൽകി

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിലെ ട്രാക്ക് ദ്വീപിൽ നിന്ന് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലാണ് വിക്ഷേപണം നടത്തിയത്

ചലിക്കുന്ന വിക്ഷേപണത്തറയിൽ നിന്നുള്ള കൃത്യതയാണ് പരീക്ഷിച്ചത്

മുൻ ധനമന്ത്രി പി ചിദംബരം ഉദ്യോഗസ്ഥരായ കെ

കൃഷ്ണൻ രമേശ് അഭിഷേക് എന്നിവരാണ് സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടത്

മഹാരാഷ്ട്രയിൽ വി വി

സി ടി

വോട്ടെണ്ണൽ ഷൂർത്തിയാകുന്നതുവരെ കേന്ദ്ര നിരീക്ഷകർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഉണ്ടാകും കേന്ദ്ര അർധ സൈനിക വിഭാഗത്തിലെ അംഗങ്ങളാണ് സുരക്ഷാ ചുമതല നിർവഹിക്കുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രണ്ട് സ്ഥലവാസികൾക്ക് പരിക്കേറ്റതായി പ്രതിരോധ വക്താവ് അറിയിച്ചു

ജമ്മു ഡിവിഷനിലെ ദോഡ ജില്ലയിലാണ് പോലീസ് അറിയിപ്പ് നൽകിയത് ഹാരുൺ അബ്ബാസ് വാനി മസൂദ് അഹമ്മദ് എന്നിവരാണ് ഭീകരർ ഇതാദ്യമായാണ് രണ്ടു ഭീകരരെ പിടികൂടാൻ സംസ്ഥാന പോലീസ് ഇത്രയും വലിയ തുക സമ്മാനമായി പ്രഖ്യാപിക്കുന്നത്

പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ താൽപര്യത്തിനു വിരുദ്ധമായാണ് പാർലമെന്റിന്റെ തീരുമാനമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു

ജനാധിപത്യത്തിലും ബഹുസ്വരതയിലും ഉറച്ച പ്രതിബദ്ധതയാണ് ഇന്ത്യയും കാനഡയും പുലർത്തുന്നതെന്ന് ശ്രീ

ഉഭയകക്ഷി ബന്ധം ഇനിയും ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടുപോകുമെന്ന് ശ്രീ

കഴിഞ്ഞ ദിവസം നടന്നു തിരഞ്ഞെടുപ്പിൽ ട്രൂഡോയുടെ ലിബറൽ പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്ക്ഷിയ്യായി അധികാരത്തിലെത്തിയിരുന്നു

ജില്ലാ ബ്ലോക്ക് തല പഞ്ചായത്തുകൾക്കും ഗ്രാമപഞ്ചായത്തുകൾക്കും പ്രോത്സാഹനം നൽകുന്നതിനാണ് പുരസ്ക്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്

ബാങ്ക് അക്കൌണ്ട് സംബന്ധിച്ച് രേഖകൾ ലഭിക്കുന്ന മുറയ്ക്ക് മറ്റുള്ളവർക്ക് നഷ്ടപരിഹാരം അനുവദിക്കും

ഇന്ന് മുതൽ രണ്ടുപേർ വീതം ഹാജരാകാനാണ് നിർദ്ദേശം

പാരീസിൽ ഇന്നലെ ആദ്യ റൌണ്ടിൽ കാനഡയുടെ മിഷേൽ ലീ യെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് സിന്ധു പരാജയപ്പപെടുത്തിയത്

മലയാളിയായ ജയേഷ് ജോർജ്ജ് ജോയിന്റ് സെക്രട്ടറിയാകും

ഗോവ ചലച്ചിത്ര മേളയിലെ ഈ വർഷത്തെ ഓപ്പൺ എയർ പ്രദർശനത്തിന്റെ പ്രമേയം ദി ജോയ് ഓഫ് സിനിമാ അഥവാ സിനിമ നൽകുന്ന ആഹ്ലാദം എന്നതാണ് ഹാസ്യരസ പ്രാധാന്യമുള്ള തെരഞ്ഞെടുത്ത ചിത്രങ്ങളും ഇന്ത്യൻ പനോരമാ വിഭാഗത്തിലെ ചിത്രങ്ങളും ഡെലിഗേറ്റുകളല്ലാത്ത സാധാരണ ജനങ്ങൾക്ക് കാണാനാകും

പഞ്ചിമിലെ അൾട്ടിൻഹൊ ജോഗേഴ്സ് പാർക്ക് മിറാമർ ബീച്ചുമാണ് വേദികൾ

പഴയകാല ക്ലാസ്സിക് ചിത്രങ്ങളായ പഡോസൻ ഉം ചൽത്തി കാ നാം ഗാഡിയും പ്രദർശനപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇവ വിൽപ്പന നടത്തിയാൽ പിഴ ഈടാക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു